ബാങ്കുകളുടെ ലയനത്തിലൂടെ തൊഴിൽ നഷ്ടം ഉണ്ടാകി ല്ലെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉറപ്പ് നൽകി

രാജ്യത്തെ ഏറ്റവും ീകൂടുതൽ നീളമുള്ള വൈദ്യുതീകരിച്ച റെയിൽ തുരങ്കവും റെയിൽ പാതയും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഇന്ന് ആന്ധ്രാപ്രദേശിൽ ഉദ്ഘാടനം ചെയ്തു

ലയനത്തിലൂടെ നിലവിലുള്ള ഒരു ബാങ്ക് ജീവനക്കാരനും തന്റെ ജോലി നഷ്ടമാവില്ലെന്നും അവർ പറഞ്ഞു ഇത് സംബന്ധിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാന രഹിതമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു

ലോകത്തിലെ പ്രമുഖ പണമിടപാട് സ്ഥാപനങ്ങളാക്കി ഇന്ത്യൻ ബാങ്കുകളെ മാറ്റുകയും അതുവഴി സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയുമാണ് ബാങ്കുകളുടെ ലയനത്തിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്

നാളെ ഈ ഭ്രമണപഥത്തിൽ നിന്നൂറ്കും ലാന്റർ വിക്രം വേർപെടുകയെന്ന് ഐ എസ് ആർ ഒ അറിയിച്ചു

ലഡാക്ക് കേന്ദ്ര ഭരണ പ്രദേശം രൂപീകരിച്ച ശേഷം ഗവൺമെന്റ് മേഖലയിലുള്ള തൊഴിലുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംരക്ഷിക്കുമെന്നും ലെ യിൽ സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു ലഡാക്കിലെ വിദ്യാർത്ഥികൾക്കുവേണ്ടി നീക്കിവച്ചിട്ടുള്ള സീറ്റുകൾ ആ രീതിയിൽ തന്നെ നിലനിൽക്കും നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ലഡാക്ക് ഉത്സവം ലെയിലെ പോളോ മൈതാനത്ത് ശ്രീ

ഉദ്ഘാടന സമ്മേളനത്തിനു മുന്നോടിയായി ലഡാക്കിന്റെ വൈവിദ്ധ്യമാർന്ന സംസ്ക്കാരം വിളിച്ചോതുന്ന വർണാഭമായ പ്രദർശനവും ഒരുക്കിയിരുന്നു

ജമ്മുകാശ്മീരിൽ പൊതുവെയും കാശ്മീർ താഴ്വരയിൽ പ്ര്യേകിച്ചും ജനജീവിതം സാധാരണ നിലയിലേയ്ക്ക് എത്തുറിക്ക്മൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങൾ വൻതോതിൽ റോഡുകളിലും പൊതുനിരത്തു കളിലും എത്തുകയും ഗത്താ്ട്ടത സൌകര്യങ്ങൾ പ്രയോജനപ്പെടു ത്തുകയും ചെയ്തു

ശ്രീനഗർ പട്ടണത്തിലെയും കാശ്മീർ താഴ്വരയിലെയും റോഡുകളിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ നീക്കം ചെയ്തിട്ടുണ്ട്

അതേസമയം ക്രമസമാധാനം പുലർത്തുന്നതിനായി സുരക്ഷാസേനയെ ഇപ്പോഴും വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജില്ലയിലെ ജമ്മു ഡിവിഷനിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെ പാക് സേന ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പ്രകോപനമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പ്രതിരോധ വക്താവ് ആകാശവാണി ജമ്മു ലേഖകനോട് പറഞ്ഞു

ഇന്ത്യൻസേന ശക്തമായി പ്രത്യാക്രമണവും നടത്തി ഇരുവശങ്ങളിൽ നിന്നുമുള്ള പോരാട്ടം ഇപ്പോഴും തുടരുന്നതായി റിപ്പോർട്ടുണ്ട് ഇരുഭാഗത്തും ആൾനാശം സംഭവിച്ചതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല

ക്യൂന്റും ഭരണ പ്രദേശത്തെ പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികളുള്ളൂ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പര്യാപ്തമാണ് ഈക്ട് ഹബ്ബ്

സിൽവാസയിൽ നിർമ്മിച്ച പുതിയ യൂത്ത് ് ഹോസ്റ്റൽ ശ്രീ

കേന്ദ്രഭരണ ക്ഷ്യദ്ദേശ്മായ ദാദ്ര നാഗർ ഹവേലിയിൽ പുതിയ ടൂറിസം പദ്ധതികൾക്കും മീന്തി തുടക്കം കുറിച്ചു

പൌരത്വ രജിസ്റ്ററിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിനുള്ള കാരണം ് ഇവരെ ഭരണകൂടം അറിയിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ വിദേശികൾക്കുള്ള ട്രൈബ്യൂണലിൽ പരാതിപെടുന്നതിന് പുറകെയായി രിക്കും ഈ പ്രക്രിയ ആരംഭിക്കുക

തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ സംബന്ധിക്കുന്ന വിശദവിവരങ്ങൾ ഈ അക്കൌണ്ടിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള സൌകര്യമുണ്ടാകും ഓരോ കുടുംബത്തിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ പരിശോധിക്കും

വെങ്കയ്യനായിപ്പിട്ടു ഇന്ന് ആന്ധ്രപ്രദേശിൽ രാഷ്ട്രത്തിന് സമർപ്പിച്ചു

ഇതോടൊപ്പം വെങ്കടാചലത്തിലും ഒബുലവാരിപ്പള്ളിയ്ക്കും ഇടയിലുള്ള വൈദ്യുതീകരിച്ച റെയിൽവേ ലെയ്നും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു

ആന്ധ്രാപ്രദേശിലെ നവീകരിച്ച ഗുഡുരു റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത ഉപരാഷ്ട്രപതി ഗുഡുരുവിൽ നിന്നും വിജയവാഡയിലേയ്ക്കുള്ള ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും ഫ്ളാഗ് ഓഫ് ചെയ്തു റെയിൽവേ വ്യോമഗതാഗതം തുറമുഖം ദ്വീപുകളിലെ ജലഗതാഗതം ഗ്രാമീണ റോഡുകൾ വെയർഹൌസുകൾ ശീതീകരണ യൂണിറ്റുകൾ എന്നിവയുടെ ആധുനികവൽക്കരണത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും പുതിയ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്തേണ്ടതുണ്ടെന്ന് ചടങ്ങിൽ സംസാരിക്കവേ ശ്രീ

നമ്മുടെ റെയിൽ റോഡ് വ്യോമ തുറമുഖ സംവിധാനങ്ങൾ കൂട്ടിയോജിപ്പിച്ച് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും സൌകര്യപ്രദമായ സേവനങ്ങൾ നൽകുവാനായി അന്താരാഷ്ട്ര മേഖലയോട് കിടപിടിക്കുന്ന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അനിവാര്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതുൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിക്കുന്നതിനുള്ള ഉത്തരവിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവച്ചു ഉത്താരാഖണ്ഡ് മൂൻമുഖ്യമന്ത്രി ഭഗത് സിംഗ് കോശ്യാരിയെ മഹാരാഷ്ട്രാ ഗവർണറായും മുൻ കേന്ദ്രമന്ത്രി ബന്ദാരു ദത്താത്രേയയെ ഹിമാചൽ പ്രദേശിന്റെ പുതിയ ഗവർണറായും നിയമിക്കും ഹിമാചൽ പ്രദേശ് ഗവർണർ ്കൽരാജ് മിശ്രയെ രാജസ്ഥാൻ ഗവർണറായി മാറ്റി നിയമിക്കും

തമിൾസായ് സൌന്ദര രാജനാണ് തെലങ്കാനയുടെ പുതിയ് ഗവർണർ

സ്ഥിിതി വ്ഷളാകാൻ കാരണം എൻ

അവസാന്പാദത്തിലെ പൂർത്മാനം വളർച്ചാ നിരക്ക് രാജ്യം നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക്ക് മാന്ദ്യത്തിലേക്കു നീങ്ങുന്നതിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ യുവജനങ്ങളും കർഷകരും തൊഴിലാളികളും വൃവസായികളും ദുർബലവിഭാഗങ്ങളും കൂടുതൽ സേവനം അർഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

സി

ശ്രീകൃഷ്ണൻ അന്തരിച്ചു

പ്രളയ ദുരിതമനുഭ വിക്കുന്ന് ജനങ്ങളെ സാധ്ാരണ ജീവിത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന തിനൊപ്പം നഷ്ടപ്പെട്ട ഭൌതിക സൌകര്യങ്ങൾ വീണ്ടെടുക്കുകയെന്നതും പ്രധാനമാണെന്നും ശ്രീ പിണറായി പറഞ്ഞു